ഉളവാക്കുന്നതാണെന്ന് മൻകി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളിൽ ശാസ്ത്രാഭിമുഖൃം വർദ്ധിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി

ദ്വിദിന സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ഇന്തൃയിലെത്തും നമസ്തേ ട്രംപ് പരിപാടിയ്ക്കായി അഹമ്മദാബാദിൽ ഒരുക്കങ്ങൾ പൂർണ്ണം

പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയ്ക്ക് നാളെ ഒരു വയസ്സ്

ഇന്ത്യ ന്യൂസിലാന്റ് ക്രിക്കറ്റ് ടെസ്റ്റ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്തൃയ്ക്ക് ബാറ്റിംഗ് തകർച്ചു

കുട്ടികളിലും യുവാക്കളിലും ശാസ്ത്രാഭിമുഖൃം വർദ്ധിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അവധിക്കാലത്ത് ഐ എസ്

യുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്പേസ് ടെക്നോളജി സ്പെയ്സ് സയൻസ് സ്പേസ് ആപ്തിക്കേ ഷൻസ് എന്നിവയെക്കുറിച്ച് പഠിക്കാൻക് കുട്ടികൾക്ക് അവസരം ഒരുക്കും ഇതിനായി ഐ എസ് ആർ ഒ് യുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാജ്ക്കും പ്രധാനമന്ത്രി അറിയിച്ചു

രാജ്യത്തിന്റെ വൈവിധ്യവും കലാകാരന്മാരുടെയും കരകൌശല വിദഗ്ധരുടെയും സർഗ്ഗാത്മകതയും പ്രദർശിപ്പിക്കുന്നതിന് മേള വലിയ വേദിയായി

ദിവ്യാംഗർ അടക്കമുള്ളവർക്കും തൊഴിൽ നൽകാൻ കരകൌശല മേഖലയ്ക്കും കഴിയുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

എസ്

ഒ യുടെ നേതൃത്വത്തിൽ കൂടുതൽ ബഹിരാകാശ പദ്ധതികളും ഉപഗ്രഹ വിക്ഷേപണങ്ങളും പുതിയ ദൌത്യങ്ങളും ഏറ്റെടുക്കുന്നതും വിജയിക്കുന്നതും ഏതൊരു പൌരന്റെയും അഭിമാനം ഉയർത്തുന്നതാണ്

ശ്രീഹരിക്കോട്ടയിൽ നടക്കുന്ന റോക്കറ്റ് ഫ്ലിക്ഷേപണം അടുത്തിരുന്നു കാണാനായി കൂടതൽ സൌകര്യങ്ങൾ ഒരുക്കി എന്നതാണ്

ആർ

രാജ്യത്തെ സ്ത്രീകളുടെ അധ്വാനവും ധൈര്യവും എല്ലാവർക്കും ഊർജ്ജം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് എഞ്ചിനുകളിലും ഈ മിശ്രിതം ഉപ യോഗിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മേഘാലയ ത്തിലെ ഗുഹകളിൽ കഴിയുന്ന ഒരു പുതിയ ഇനം മത്സ്യവർഗ്ഗത്തെ അടുത്ത കാലത്ത് ജൈവശാസ്ത്രകാര ന്മാർ കണ്ടെത്തിയതായും ഇതിൽ താൻ സന്തോഷിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു വരാനിരിക്കുന്ന ആഘോഷങ്ങൾക്ക് ആശംസകൾ അറിയിച്ചാണ് പ്രധാനമന്ത്രി മൻ കി ബാതിന്റെ ഇന്നത്തെ അധ്യായം ഉപസംഹരിച്ചത്

ട്രംപിന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആഗ്രയിൽ വിപുലമായ സ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് താജ്മഹൽ സന്ദർശനത്തിൽ പ്രധാമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാൻ സാദ്ധ്യതയില്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യാ സന്ദർശനത്തിൽ സാമ്പത്തിക ഊർജ്ജ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭീകരവാദത്തിനെതിരായുള്ള നിലപാടുകളും ഇൻഡോ ഫെസഫിക് മേഖലയിലെ സമാധാന പ്രവർത്തനങ്ങളും ചർച്ചയാകും എന്നാണ് പ്രതീക്ഷ അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായതുകൊണ്ട് തന്നെ നയതന്ത്രതലത്തിൽ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്

പിന്നീട് രാജ്യത്തെ മുഴുവൻ ക്ർഷക കുടുംബങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു

ജമ്മുകാശ്മീരിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നിപ എബോള പന്നിപ്പനി ്യ് വൈറസുകൾ വന്ന സമയത്തും ഇത്തരത്തിൽ പ്രതിരോധ്പിക്കാൻ രാജ്യത്തിനു സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു

ആറ് പേർക്ക് പരിക്കേറ്റു യാത്രക്കാരുമായി വന്ന വാഹനം റോഡരുകിലെ കുഴിയിലേക്ക് മറിഞ്ഞാണ് അപകടം

രാജു അറിയിച്ചു